മാർഗ്ഗരേഖ അടുത്ത മാസം നാല് മുതൽ നിലവിൽ വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം

ഇന്തൃയിൽ കോവിസ്സ് രോഗികളുടെ എണ്ണം കുറഞ്ഞു ന് വരുന്നതായി ആരോഗൃ മന്ത്രാലയം

കമ്മറ്റികൾ രൂപീകരിക്കണമെന്ന് ശുപാർശ അന്തിമ റിപ്പോർട്ട് കേന്ദ്രധനമന്ത്രിക്ക് സമർപ്പിച്ചു

പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ പുറത്തിറക്കിയ ഓർഡിനൻസിന് ഗവർണറുടെ അംഗീകാരം

മുംബൈയിൽ അന്തരിച്ചു

രാജ്യത്ത് ചില ജില്ലകളിൽ ഇളവ് നൽകുന്നതും പരിഗണനയിലുണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉടൻ പുറത്തു വിടുമെന്ന് ആഭ്യന്തര മന്ത്രൂലയം വക്താവ് അറിയിച്ചു

ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് രാജ്യത്തെ രോഗവ്യാപനക്കു നിയന്ത്രിക്കാനായെന്നും വിലയിരുത്തുന്നുണ്ട് ഈ സീഹച്ചര്യത്തിൽ മെയ് മൂന്ന് വരെ നിലവിലെ നിയന്ത്രണങ്ങൾ കർശനമായി തുടരണമെന്നും നിർദ്ദേശമുണ്ട്

വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന കുടിയേറ്റത്തൊഴിലാളികൾക്കടക്കം ആശ്വാസം പകരുന്നതാണ് നടപടി ഇതിനായി സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണപ്രദേശങ്ങളും നോഡൽ ഓഫീസർമാരെ നിയമിക്കണം കുടിയേറ്റത്തൊഴിലാളികൾ തീർത്ഥാടകർ വിനോദസഞ്ചാരികൾ വിദ്യാർത്ഥികൾ മറ്റു വ്യക്തികൾ എന്നിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് റോഡുമാർഗ്ഗം പോകുന്നതിനാണ് അനുമതി

കോവിഡുമായി ബന്ധപ്പെട്ട് ആരോഗ്യമേഖലയിലെ സൌകര്യങ്ങളെ കുറിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിംഗ് നടത്തവെയാണ് അവർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്

ഇന്നലെ സ്ഥിരീകരിച്ച പത്ത് പേർ ഉൾപ്പെടെയാണിത്

ര്ാജ്യ്ത്തൊട്ടാകെ ലോകോത്തര അടിസ്ഥാന സൌകര്യ വികസനത്തിനായും എല്ലാ പൌരന്മാരുടെയും ജീവിതനിലവാരം ഉയർത്തുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉദ്യമമാണ് ദേശീയ അടിസ്ഥാനസൌകര്യ പദ്ധതി

ശമ്പളം പിടിക്കാനുള്ള തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഓർഡിനൻസ് ഇറക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭ തീരുമാനിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ അംഗസംഖ്യ നിലനിർത്തി കൊണ്ടുള്ള ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകി ഗവർണറുടെ അംഗീകാരം ലഭിച്ച സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ആറു ദിവസത്തെ ശമ്പളം മാറ്റി വച്ച് തിങ്കളാഴ്ച മുതൽ ശമ്പളം നല്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു

അമേരിക്കയിൽ ഒരു വർഷം നീണ്ട ചിക്ടിത്സക്ക് ശേഷം കഴിഞ്ഞ സെപ്തംബറിലാണ് അദ്ദേഹം ഇത്ത്യിലെത്തിയത്

ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശ്വീയ് പുരസ്കാരം ലഭിച്ചിരുന്നു